കേന്ദ്രത്തിന്റെ ആത്മനിർഭർ ബജറ്റെന്ന് പ്രധാന മന്ത്രി നരേന്ദ്ര മോദി

ന് കേരളത്തിൽ ഇന്നീർല് കൂടുതൽ പേർക്ക് രോഗമുക്തി

സംബന്ധിച്ച് ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇന്ന് അടിയന്തര ചർച്ച നടത്തും മ്യാൻമാറിന് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക

എൽ ഫുട്ബോളിൽ ഒഡിഷ എഫ്

എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ജംഷഡ്പൂർ

വ്യക്തികളിലും നിക്ഷേപകരിലും വ്യവസായ അടിസ്ഥാന സൌകരൃ മേഖലകളിലും ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് ബജറ്റ് വഴിയൊരുക്കും സമ്പത്ത് ഉത്പാദിപ്പിക്കുകയും ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ബജറ്റ് ആരോഗൃമേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി ഗവേഷണത്തിനും നവീനമായ കണ്ടെത്തലുകൾക്കും ഊന്നൽ നൽകാനും ശ്രദ്ധിച്ചു

കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റാണിതെന്നും കഠിനാദ്ധാനികളായ അന്നദാതാക്കളുടെ വരുമാനം ഇരട്ടിയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വായ്പാ ലഭ്യത വർദ്ധിക്കുകയും ്ല എ

എം

തെക്കൻ സ്ട്രീസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ മേഖല ലഡാക്ക് എന്നീട് പ്രദേശങ്ങളുടെ ആവശ്യങ്ങൾക്ക് ബജറ്റ് പ്രത്യേക്ക് പ്രിഗണന നൽകി തീരദേശത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുന്ന്ത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പ്രകീർത്തിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ബജറ്റ് തയ്യാറാക്കൽ ഏറെ സങ്കീർണ്ണമായിരുന്നെന്ന് ആഭ്യന്തരമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ എല്ലാ മേഖലയിലും ക്ഷേമം ഉറപ്പാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറാക്കിയത് ആത്മനിർഭർ ഭാരത് അഞ്ച് ലക്ഷം കോടി ഡോളറിന്റെ സമ്പദ്വൃവസ്ഥ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ തുടങ്ങിയ ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് പ്രഖ്യാപിച്ചത് കാർഷികവായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്

ഒന്നര കോടിയോളം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

പ്രധ്നാന മന്ത്രി നരേന്ദ്രമോദി പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിക്കുന്ന് കോവിഡ് പ്രതിസന്ധികാലത്ത് അവതരിപ്പിച്ച ക്ട്രീന്ദ് ബജറ്റ് തെളിയിക്കുന്നു ഇതൊരു വിപ്ലവകരമായ ബജറ്റാണെന്നു് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളേയും ബജറ്റിൽ പ്പരിഗണിക്കുന്നതായും ശ്രീ

തൊഴിലാളികൾക്കും കർഷകർക്കും മാസശമ്പളക്കാർക്കും നിരാശ മാത്രമാണ് ബജറ്റ് നൽകുന്നതെന്ന് എൻ സി

രാജ്യത്തിന്റെ ആസ്തികൾ വിറ്റുതുലയ്ക്കാനുള്ള രേഖയാണോ ബജറ്റെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അദ്ധ്യക്ഷൻ ബാലസാഹൈബ് തൊറാത്ത് ചോദിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ പ്രീണിപ്പിക്കാൻ നിർണ്ണായക മേഖലകൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചെന്ന് ശിവസേനയുടെ രാജ്യസഭാംഗം പ്രിയങ്ക ചതുർവേദി ആരോപിച്ചു

വിവിധ മേഖലകളിൽ കൂടുതൽ തുക ചെലവിടാനുള്ള തീരുമാനം സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പ്രമുഖ വ്യവസായികൾ അഭിപ്രായപ്പെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരിവിൽപ്പന ഇൻഷുറൻസ് മേഖലയിലെ വിദേശനിക്ഷേപം ഉയർത്തൽ തുടങ്ങിയ പരിഷ്ക്കരണ നടപടികൾ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയ്ക്ക് വലിയ കുതിച്ചുചാട്ടമാകും റോഡ് റെയിൽവേ തുറമുഖങ്ങൾ നഗരവികസനം തുടങ്ങിയവ സമ്പദ്വൃവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഇന്ത്യൻ മെർച്ചന്റ്സ് ചേംബർ അഭിപ്രായപ്പെട്ടു

നവ ഉദാരവൽക്കരണ പ്രക്രിയ്ക്കളെ ്പൂർവാധികം ശക്തിയോടെ നടപ്പാക്കുന്നതാണ് കേന്ദ്ര ബ്ജ്ജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ പൊതു്മേഖല സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുകൃഇൻഷുറൻസ് മേഖലയിലടക്കം വിദേശ നിക്ഷേപം വർധിപ്പിക്കാനും നിർദേശങ്ങളുള്ള ബജറ്റ് എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി രാജ്യത്തെ പൂർണമായി കച്ചവട താൽപര്യങ്ങൾക്കു വിട്ടുനൽകുന്നതിനു തുല്യമാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു

സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ലെന്നും വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതാണ് ബജറ്റെന്നും ചെന്നിത്തല ആരോപിച്ചു

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

കേരളത്തിനെ കൈപിടിച്ചുയർത്തുന്ന ബജറ്റാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ടെക്സ്റ്റൈൽ വൃവസായത്തിന്റെ അഭിവൃദ്ധിയ്ക്കായി രാജ്യത്ത് ഏഴ് മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് അനുവദിച്ചത് ഈ മേഖലയെ ഏറെ സമ്പുഷ്ടമാക്കുമെന്നും ചേംബർ സംഘടിപ്പിച്ച ബജറ്റ് ചർച്ച യോഗം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഞ്ച് ലക്ഷം കോടി ഡോളർ സമ്പദ്വൃപ്പസ്മെയെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതാണ് ബജറ്റെന്ന് ് ഫോറം പ്രസിഡന്റ് മുകേഷ് ആഘി പറഞ്ഞു

വാക്സിൻ നൽകിയതിലൂടെ ഇന്ത്യയ്ക്കും ഒമാനുമിടയിൽ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന സൌഹൃദം ദൃഢപ്പെട്ടതായി വിദേശകാര്യ മന്ത്രി എസ്

പ്രിസിഡന്റ് വിൻമിന്റ് ജനാധിപത്യ പ്രക്ഷോഭനായിക ഓങ്സ്കാൻ സൂചി തുടങ്ങിയവരെ തടവിലാക്കിയാണ് മ്യാൻമ്റ്റിൽ പട്ടാളം സർക്കാരിനെ അട്ടിമറിച്ചത്

ജനാധിപത്യം ഭീഷണി നേരിടുന്നിടത്തെല്ലാം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക നിലകൊള്ളുമെന്നും ബൈഡൻ വ്യക്തമാക്കി കഴിഞ്ഞ ദശാബ്ദത്തിൽ മ്യാൻമർ ജനാധിപത്യ ക്രമങ്ങളോട് കാട്ടിയ ആഭിമുഖ്യമാണ് ആ രാജ്യത്തിൻമേലുള്ള ഉപരോധം നീക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് ബൈഡൻ കൂട്ടിച്ചേർത്തു

എല്ലാ കക്ഷികളും അഭിപ്രായ ഭിന്നതകൾ ഭരണഘടനാ പരവും നിയമപരവുമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ പറഞ്ഞു

ഈ വിജയത്തോടെ ജംഷഡ്പൂർ പ്പേ ഓഫ് സാധൃതകൾ സജീവമാക്കി പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി

ഈ തോൽവിയോടെ ഒഡ്ടീഷ്യുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇല്ലാതായി

ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള തെരഞ്ഞെടുപ്പ് നടപടികളിൽ സാമൂഹിക അകലം മുഖാവരണം അണുനാശിനി എന്നിവയുടെ ഉപയോഗം അടക്കമുള്ള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു